സംസ്ഥാനത്തും പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടിയ വർദ്ധന

കോവിഡ് വൃാപനം വർദ്ധിക്കുന്ന സാഹചരൃത്തിൽ ന് നിയന്ത്രണങ്ങൾ കർശനമാക്കി കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ആർ ടി

സി

പരിശോധന നിർബന്ധമാക്കി

സർവ്വകലാശാല പരീക്ഷകൾ മാറ്റി വച്ചു

നിയന്ത്രണങ്ങളിൽ അന്തിമ തീരുമാനം നാളെ

എൽ

പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം രണ്ടര ലക്ഷം കടന്നു

കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടിയ പ്രതിദിന രോഗബാധയാണ്

തൃശ്ശൂർ കോട്ടയം മലപ്പുറം കണ്ണൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ആയിരത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു

മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ടേരളത്തിലേക്ക് വരുന്നവർക്ക് ആർ

രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ആരോഗ്യവകുപ്പിനെ അറിയിച്ച് കൃതൃമായി ചികിത്സ തേടണമെന്നും ആരോഗൃ വകുപ്പ് അറിയിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഇ ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം വാക്സിനേഷൻ ഇൻട്രോ ലോകം മുഴുവൻ കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുക എന്നതാണ് കൊറോണ വൈറസ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാനുള്ള ഏകമാർഗ്ഗമെന്ന് ഐ

ഭാരവാഹിയായ ഡോ സാമുവൽ കോശി ആകാശവാണിയോട് പറഞ്ഞു

ചികിത്സ പ്രതിരോധം ഗവേഷണം ക്രൈസിസ് മാനേജ്മെന്റ് എന്നിങ്ങനെ നാല് മേഖലകളായി തിരിച്ചുള്ള ന്റിർദ്ദേശങ്ങളാണ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ വൃക്തമാക്കിയിട്ടുള്ളത്

ഇതുസംബന്ധിച്ച് സർവ്വകലാശാല വൈസ് ചാൻസലർമാർക്ക് ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി കാലിക്കറ്റ് കേരള മഹാത്മാഗാന്ധി സർവ്വകലാശാലകളും ആരോഗ്യ സർവ്വകലാശാലയും സാങ്കേതിക സർവ്വകലാശാലയും മലയാളം സംസ്കൃത സർവ്വകലാശാലകളും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവ്വകലാശാലയും നാളെ മുതൽ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചതായി അറിയിച്ചു

മാറ്റിവച്ച മറ്റ് സർവ്വകലാശാല പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും സാങ്കേതിക പരീക്ഷാ വിഭാഗം നടത്താനിരുന്ന വിവിധ ഡിപ്പോമ പരീക്ഷകളും മാറ്റിവച്ചു

പരീക്ഷ കോവിഡ് വ്യാപനത്തിന്റെ ് പശ്ചാത്തലത്തിൽ ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശ്രന് പരീക്ഷയായ ജെ

രമേശ് ചെന്നിത്തല സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് ഉയരുന്ന സാഹചരൃത്തിൽ ഇപ്പോൾ നടക്കുന്ന പൊതു പരീക്ഷകൾ തുടരണോ എന്ന കാര്യത്തിൽ സർക്കാർ പുനരാലോചന നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്താകട്ടെ എസ് എസ് എൽ

എന്നാൽ സി ബി എസ്

സി എസ് സി ഉൾപ്പെടെ ദേശീയ തലത്തിൽ പരീക്ഷകളെല്ലാം മാറ്റിവച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് ആവശൃം ഉന്നയിച്ചത്

രണ്ട് ഡോസ് വാക്സിനേഷൻ എന്ന കാര്യത്തിൽ ഇള്ളിപ് വേണമെന്നും ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു അന്തിമത്രീരു്മാനം നാളെ ചേരുന്ന യോഗത്തിൽ ഉണ്ടാകും

അപ്പപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു വ്യാപക തെരച്ചിൽ കാക്കനാട് മുട്ടാർപുഴയിൽ മരിച്ച് നിലയിൽ കണ്ടെത്തിയ വൈഗയുടെ പിതാവ് സന്നൂമോഹനെ കർണാടകയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത്തായി റിപ്പോർട്ട് ഇയാളെ കർണ്ണാടക പോലീസാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം ഇയാൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര നഗരിയിൽ ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് പൊലീസ് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായില്ല സനുമോഹനെ നാളെയോടെ കൊച്ചിയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം

കോർപ്പറേഷന്റെ രണ്ടു വാർഡുകൾക്ക് ഒരു സെക്ടറൽ മജിസ്ട്രേറ്റ് എന്ന തോതില്ലാണു് ്നിയമിച്ചിട്ടുള്ളത്

ഓരോ ഡിവിഷനിലെയും കൌൺസിലർമാർ പൊതു സംഘടനകൾ എന്നിവരുടെ സേവന്ത് സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ പ്രവർത്തനത്തിൽ പ്രയോജനപ്പെടുത്തും

വടക്കേ അമേരിക്കൻ ബില്യൺ മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടന്നത്